സംസ്ഥാനത്ത് കോവിഡ് സമൂഹവ്യാപനമുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ആന്റിബോഡി ടെസ്റ്റ് വ്യാപകമാക്കും

സംസ്ഥാനത്ത് ചൊവ്വാഴ്ചൂ വരെ ശക്തമായ മഴയ്ക്ക് സാധൃത കൊച്ചി പ്രധ്നുഷ്കോടി ദേശീയപാതയിലെ ദേവികുളം ഗ്യാപ്പ് റ്റോസിൽ ഗതാഗതം നിരോധിച്ചു

ഇപ്പോഴുള്ള നിലയിൽ അത് തുടരുന്നതാണ് നല്ലതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കോവിഡ് രോഗബാധിതരുടെ എണ്ണം ഇനിയും ഉയരുന്നതിന്റെ സൂചയാണുള്ളതെന്നും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന കരുതലും ജാഗ്രതയും കുറയുന്നുണ്ടോ എന്നു പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു സംസ്ഥാനത്ത് കോവിഡ് ബാധിതർ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതിനൂതന പരിശോധന സംവിധാനങ്ങൾ അടിയന്തര പ്രാധാന്യത്തോടെ സജ്ജമാക്കുകയാണ് സമൂഹ വ്യാപനം ഉണ്ടോ എന്നു നിരീക്ഷിക്കാൻ ആന്റി ബോഡി ടെസ്റ്റുകൾ വ്യാപകമാക്കുമെന്നും മുഖ്യമന്ത്രി വൃക്തമാക്കി

സന്തോഷ് ട്രോഫിയിൽ മഹാരാഷ്ട്രയ്ക്കു വേണ്ടി ബൂട്ടണിഞ്ഞ ഇദ്ദേഹം നെഹ്റു ക്ട്രോഫി ഇന്ത്യൻ ടീം അംഗവും മുൻ കാലിക്കറ്റ് വാഴ്സിറ്റി താരവുമാണ്

ഭാര്യയ്ക്കും മകനുമാണ് ആദ്യം രോഗം സ്ഥിരീകരിച്ചത്

ഷകക കോവിഡ് കോഴിക്കോട് കോഴിക്കോട് മെഡിക്കൽ കോളെജിൽ ചികിത്സയിലിരിക്കെ കോവിഡ് റിപ്പോർട്ട് ചെയ്ത മണിയൂർ സ്വദേശിനിയുടെ സാമ്പിളുകൾ വീണ്ടും പരിശോധന നടത്തിയപ്പോൾ ഫലം നെഗറ്റീവ് ആലപ്പുഴയിലെ വൈറോളജി ഇൻസിറ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഫലം നെഗറ്റീവായത്

അതേസമയം മാവൂർ സ്വദേശിയായ കുട്ടിയുടെ ഫലം പോസിറ്റീവായി തുടരുന്നു

ചൊവ്വാഴ്ച മുതൽ ഇവ നിയന്ത്രണ വിധേയമായി പ്രവർത്തിക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ അറിയിച്ചിരുന്നു

മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിലും തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിലും ശക്തമായ കാറ്റിന് സാധൃതയുള്ളതിനാൽ ഈ ഭാഗങ്ങളിൽ മീൻ പിടിക്കാൻ പോകരുതെന്ന് നിർദ്ദേശമുണ്ട് ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

വിശദാംശങ്ങളുമായ ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ

കുട്ടനാട്ടിൽ ജലിനിരപ്പ് ഉയർന്നു

മഹാത്മാഗാന്ധി ദേശീയ്ത്ര്യാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തദ്ദേശ സ്വയംഭരണീ പ്പ് സ്ഥപാനങ്ങൾ ഗ്രാമീണ തോടുകളും നീർചാലുകളും വെട്ടി ആഴം കൂട്ടുന്ന പ്രവർത്തി ഏറ്റെടുത്തിയിരിക്കുകയാണ്

കനത്ത മഴ തുടരുന്നതിനാൽ ഇടുക്കിയും ശബരിഗിരിയുമുൾപ്പെടെ പ്രധാന ഡാമുകളിൽ നീരൊഴുക്കിൽ വലിയ വർദ്ധനയുണ്ടായി ഇന്നലത്തെ കണക്കു പ്രകാരം സംഭരണകളിലെല്ലാംകൂടി ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ

കേരളത്തിലെ സഹകരണ സംഘങ്ങൾ മുഖേന തരിശു ഭൂമിയൽ പച്ചക്കറി ഉത്പാദനം ലക്ഷമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ബാലരാമപുരത്തെ ട്രിവാൻഡ്രം സ്പിന്നിങ്ങ് മിൽ വളപ്പിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു തരിശുഭൂമിയിൽ കൃഷിയിറക്കുന്ന നിലയിലേക്ക് പൊതുബോധത്തെ മാറ്റിയെടുക്കാൻ സർക്കാരിനായെന്ന് മിന്ത്രി പറഞ്ഞു

പദ്ധതിയുടെ ഭാഗമായി ഒരു ലക്ഷം തെങ്ങിൻ തൈകളും പരിപാലിക്കും

കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ലോകത്ത് ഇന്തൃ ആറാം സ്ഥാനത്താണ്

ജില്ലാ പഞ്ചായത്തു പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ച് യാതൊരു കരാറുമില്ലെന്ന നിലപാടിലുറച്ചു നിൽക്കുകയാണ് ജോസ് പക്ഷം കോൺഗ്രസിനു വേണ്ടിയാണെങ്കിൽ സ്ഥാനം വിട്ടു നൽകാൻ തയ്യാറാണെന്നും ജോസ് പക്ഷം പറയുന്നു പാലായിലെ തെരഞ്ഞെടുപ്പിൽ ജോസഫ് വിഭാഗം ചതിച്ചെന്നും ജോസ് കെ മാണി പറഞ്ഞു

വിശദാംശങ്ങളുമായ ആകാശവാണി ക്യോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു

അനുമതി ഇല്ലാതെ പ്രവേശിച്ച ഇവരെ ഒരു കിലോമീറ്റർ ഉൾഭാഗത്തെ വനത്തിനുള്ളിൽ വെച്ചാണ് പിടികൂടിയത് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറും മൂന്ന് ബീറ്റ് ഓഫീസർമാരും ചേർന്ന് വനത്തിലൂടെ പിന്തുടർന്നാണ് സംഘത്തെ പിടികൂടിയത്

ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ വളണ്ടിയർമാർ വീടുകളിൽ തയ്യാറാക്കിയ പ്താവിൻ പ്രൈകളാണ് പരിസ്ഥിതി ദിനത്തിൽ പൊതു സ്ഥലങ്ങളിലും വീട്ടുവളപ്പിലുമായി നട്ടത് ഒന്നേകാൽ ലക്ഷം പ്താവിൻ തൈകൾ വിദ്യാർത്ഥികൾ പരിസ്ഥിതി ദിനത്തിൽ നട്ടു